പാസാക്കി നടപടി കർഷക ശാക്ത്യീക്കർണത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി

എൽ സൂപ്പർ ഓവറിൽ ദില്ലി ക്യാപിറ്റൽസ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ പരാജയപ്പെടുത്തി

ഓപ്പൺ ടെന്നീസിന്റെ ഫൈനലിൽ

ബിഹാറിന്റെ വികസനത്തിന് ് വഴി തുറക്കുന്ന ഈ റോഡ് നിർമ്മാണപദ്ധതികൾ സംസഥാനത്തിന്റെ യാത്രാസൌകര്യങ്ങളും ചരക്കുനീക്കവും കൂടുതൽ സുഗമമാക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും ബിഹാറിലെ എല്ലാ ഗ്രാമങ്ങളേയും ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ഇന്റർനെറ്റ് സേവനങ്ങളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ബില്ലിൻമേലുള്ള ചർച്ചക്ക് കേന്ദ്ര കൃഷിമന്ത്രി മറുപടി പറയവേ കോൺഗ്രസ് ഇടതുപക്ഷം ടി എം സി ആർ ജെ ഡി ഡിഎംകെ എ

ചരിത്രപരമായ നിയമനിർമാ ണമാണ് ഇതെന്ന് ബില്ലുകൾ രാജ്യസഭയിൽ അവതരിപ്പിച്ച കൃഷിമന്ത്രി നരേന്ദ്ര സിങ് തോമർ പറഞ്ഞു

ഇന്ത്യൻ കാർഷിക രംഗത്തെ സുപ്രധാന മുഹൂർത്തമാണിതെന്ന് കാർഷിക ബില്ലുകൾ പാസാക്കിയതിനെ പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു

പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെ ന്നും ശ്രീ

സഭയിൽ ചർച്ചകൾക്ക് വേദിയൊരുക്കേണ്ടത് ഭരണപക്ഷത്തിന്റെയും മാന്യമായ പെരുമാറ്റം ഉറപ്പു വരുത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെയും കടമയാണ് കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുന്നതിനായാണ് കാർഷിക ബില്ലുകൾ കൊണ്ടു വന്നതെന്നും കാർഷികോത്പന്നങ്ങൾക്കുള്ള താങ്ങുവില തുടരുമെന്നും രാജ്യ രക്ഷാമന്ത്രി പറഞ്ഞു

ദേശീയ പ്രാധാന്യമുള്ള ഫോറൻസിക് ശാസ്ത്രൂ സർവകലാശാല സ്ഥാപിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ് ക്ലാഷണൽ ഫോറൻസിക് സയൻസ് സർവകലാശാല ബിൽ

മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും സംബന്ധിച്ച ഭേദഗതി ബില്ലും ഫിനാൻഷ്യൽ കോൺട്രാക്ട് ബില്ലും ലോക്സഭ പാസ്സാക്കി

വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലും വിനിയോഗിക്കുന്നതിലും സുതാര്യത ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകൾ ബിൽ മുന്നോട്ടുവയ്ക്കുന്നു ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകളുടെ എല്ലാ ഭാരവാഹികൾക്കും ആധാർ നിർബന്ധമാക്കും സർക്കാർ ജീവനക്കാർക്ക് വിദേശ ധനസഹായം സ്വീകരിക്കാനാവില്ല ആധാർ സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ബിൽ കൊണ്ടുവന്നതെന്ന് കേന്ദ്രആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു

ആന്ധ്രാപ്രദേശ് അസം നാഗാലാന്റ് ഹിമാചൽ പ്രദേശ് ജമ്മു കശ്മീർ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ സ്കൂളുകളാണ് തുറക്കുന്നത് അതേസമയം കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കില്ല

നാസികിൽ ചേർന്ന സമ്മേളനത്തിൽ മറാത്ത വിഭാഗത്തിന് സംവരണം ലഭിക്കാനുള്ള നിയമപോരാട്ടം തുടരുമെന്ന് സമുദായ പ്രതിനിധികൾക്ക് അദ്ദേഹം ഉറപ്പു നൽകി

സംസ്ഥാന തലസ്ഥാനത്ത് കോവിഡ് ബാധിതർ വർദ്ധിച്ചതിനെ തുടർന്നാണ് ശനിയാഴ്ച അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചത്

സാമൂഹ്യ മാധ്യമത്തിലൂടെയുള്ള സൺഡേ സംവാദ് പരിപാടിയിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി വൈറസിന്റെ പ്രവർത്തനങ്ങളും പരിണാമങ്ങളും സംബന്ധിച്ച് ഐ സി എം ആർ പരിശോധിച്ചു വരികയാണെന്നും അടുത്ത മാസം ആദ്യത്തോടെ അതിന്റെ ഫലങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം അറിയിച്ചു

കോവിഡ് മഹാമാരിയെ ക്കുറിച്ചുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി

മധ്യകേരളം മുതൽ വടക്കോട്ട് ഇന്ന് രാവിലെ വരെ കനത്ത മഴയുണ്ടാകും

രണ്ട്രാമത്തെയും മൂന്നാമത്തെയും പന്തിൽ കഗിസോ ബൊഡാ കെ എൽ ്യാപ്മുലിനെയും നിക്കോളാസ് പൂരനെയും പുറത്താക്കിയതോടെ പ്പഞ്ചാബിന് രണ്ട് റൺസ് മാത്രമാണ് നേടാനായത്